തൊഴിൽ നൈപുണ്യം സംരംഭകത്വ ശേഷി എന്നിവയുമായി വിദ്യാഭ്യാസത്തെ ബന്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് കേന്ദ്ര ബജറ്റ് കരുത്ത് പകരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പ്രചാരണം ചുടുപിടിക്കുന്നു

നേരിടുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്

വിദ്യാഭ്യാസ മേഖലയിൽ ബജറ്റ് നിർദേശങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വെബ്ബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളിലേക്ക് ആരോഗൃ മേഖല കഴിഞ്ഞാൽ ഇക്കൊല്ലത്തെ ബജറ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുള്ളത് വിദ്യാഭ്യാസം ശേഷ്ഠിവികസനം ഗവേഷണം നൂതനാശയ രൂപീകരണം എന്നിവയ്ക്ക്ട്ടിണെന്നു പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

അറിവ് ഗവേഷണം എന്നിവയ്ക്ക് പ്രിധികൾ നിശ്ചയിക്കുന്നത് രാജ്യത്തോട് ചെയ്യുന്ന അനീതിയാണെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി ഇത് മുന്നിൽ കണ്ടു കൊണ്ടാണ് കൃഷി ബഹിരാകാശം ആണവോർജം തുടങ്ങിയ മേഖലകൾ രാജ്യത്തെ യുവാക്കൾക്കായി തുറന്നു നൽകുന്നതെന്നും വൃക്തമാക്കി പുതിയ വിദ്യാഭയസ നയത്തിൽ ഇന്ത്യൻ ഭാഷകളുടെ ഉപയോഗത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകിയത് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ലോകത്തിലെ മികച്ച വിവരങ്ങളെല്ലാം തദ്ദേശീയ ഭാഷകളിൽ ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് അതത് ഭാഷകളിലെ വിദഗ്ദ്ധരുടെ ഉത്തരവാദിത്തമാണെന്നും അറിയിച്ചു

സിംഹം കടുവ പുലി തുടങ്ങി വിവിധ വനൃജീവികളുടെ എണ്ണം രാജൃത്ത് തുടർച്ചയായി വർധിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ വനങ്ങളും മൃഗങ്ങളുടെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളും സംരക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും ശ്രീ മോദി ഓർമിപ്പിച്ചു

മുൻപ് ആയു ഷ്മാൻ ഭാരത് സംസ്ഥാന ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിൽ വരുന്ന ആശുപത്രികളിൽ മാത്രമായിരുന്നു വാക്സിനേഷന് അനുമതി നൽകിയിരുന്നത് മതിയായ ജീവനക്കാരും സ്ഥലസൌകര്യവും ശീതീകരണ സംവിധാനവുമുള്ള എല്ലാ സ്ഥകാര്യ ആശുപത്രികളിലും വാക്സിനേഷൻ ഇനി മുതൽ നടത്താവുന്നതാണ്

തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിലെത്തിയാണ് മുഖ്യമന്ത്രി വാക്സിൻ സ്വീകരിച്ചത് കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ ആരും മടിക്കരുതെന്ന് വാക്സിൻ സ്വീകരിച്ച ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു വാക്സിൻ സ്വീകരിച്ചപ്പോൾ യാതൊരു അസ്വസ്ഥതയും ഉണ്ടായില്ലെന്നും ആശങ്കയ്ക്ക് ഇടയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു വാക്സിനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചാരണങ്ങൾക്ക് ചെവി കൊടുക്കരുതെന്നും എല്ലാവരും വാക്സിൻ സ്വീകരിക്കാൻ മുന്നോട്ട് വരണമെന്നും മുഖ്യമന്ത്രി് അഭ്യർത്ഥിച്ചു

എ

ഇന്ത്യയ്ക്കും യു

ഇ ്യ്ക്കും പുറമേ അമേരിക്ക ഫ്രാൻസ് സൌദി അറേബ്യ ദക്ഷിണ ഏക്റ്റിയ ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളും വ്യാമാഭ്യാസ പ്രകടനങ്ങളിൽ ്പങ്കെടുക്കുന്നുണ്ട്

വൊഡാഫോൺ ഐഡിയ ഭാരതി എയർടെൽ റിലയൻസ് ജിയോ എന്നീ കമ്പനികളാണ് ലേലത്തിൽ പങ്കെടുത്തത്

അസ്സമിൽ രണ്ടു ഘട്ടമായും ബംഗാളിൽ എട്ടു ഘട്ടങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

അതിനിടെ അസ്പ്രമീൽ താര പ്രചാരകരായി മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ചലച്ചിത്രി താരങ്ങളും എത്തുമെന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദ്ദി ബീ ജെ

ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആഭ്യന്തരമന്ത്രി അ്മിത് ഷാ തുടങ്ങിയവർ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്ക്ക്ക്ക്കുമന്ന് ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്

എന്നാൽ തിരഞ്ഞെടുപ്പിന് ദിവസീങ്ങൾ് ശേഷിക്കെ മുൻ മേയറും ത്രിണമൂൽ എം

യുമായിരുന്ന് ജിതേന്ദ്ര തിവാരി ബി ജെ പിയിൽ ചേർന്നത് ഒരു മാറ്റത്തിനും ഇടയാക്കില്ലെന്ന് ടി

ഹൂഗ്ലി ജില്ലയിൽ ഇന്നലെ വൈകിട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ദിലിപ് ഘോഷിന്റെ സാനിധൃത്തിലായിരുന്നു തിവാരിയുടെ പാർട്ടി പ്രവേശനം ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐ യുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇന്ന് അന്തിമ തീരുമാനമായേക്കും

എമ്മിൽ സ്ഥാനാർത്ഥി ചർച്ച അവസാന ഘട്ടത്തിലാണ് കോൺഗ്രസും കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗവും സീറ്റ് വിഭജനത്തിൽ ചർച്ചകൾ തുടരുകയാണ്

ഡി എഫ് ഏകോപന സമിതി യോഗം ഉച്ചതിരിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും

കിഫ്ബിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തതുമായി ബന്ധപ്പെട്ട് കേസ് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ദൂ കിഫ്ബിക്കെതിരായ ഗൂഢാലോചന മറനീക്കി പുറത്തു പ്പിന്നിരീക്കുകയാണ് രാഷ്ട്രീയ പ്രചരണത്തിനായി ഇ

തന്റെ മണ്ഡലമായ പൂഞ്ഞാറിൽ മാത്രമേ ജനപക്ഷം മത്സരിക്കൂ എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

ജെ

ജെ

ജെ

കഴിഞ്ഞ വർഷമാണ് ഹരിയാന നിയമസഭ ഇത് സംബന്ധിച്ച ബിൽ പാസ്റ്റാക്കിയത്

നേരത്തെ എൽ

എം നേതാവായ ഹിദായത്ത് യുല്ലാ മാലിക്കിനെ എൻ

എ അറസ്റ്റ് ചെയ്തിരുന്നു

ഇതുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയൻ നടപടികളുടെ ് തുടർച്ചയായാണ് ഉപരോധമെന്നും ജയിലിൽ കഴിയുന്ന നവാൽനിയെ ഉടൻ മോചിപ്പിക്കണെമന്നും അമേരിക്കൻ വക്താവ് വ്യക്തമാക്കി ജോബൈഡൻ പ്രസിഡന്റായ ശേഷം റഷ്യയ്ക്കെതിരെ ്അമേരിക്ക സ്വീകരിക്കുന്ന ആദ്യ നടപടിയാണിത് അതേസമയം ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ തീരുമാനത്തെ റഷ്യ അപലപിച്ചു ഉപരോധം പോലുള്ള ശക്തമായ നടപടികളിൽ പുനർവിചിന്തനം നടത്താൻ തയ്യാറാവണമെന്ന് റഷ്യൻ വക്താവ് ആവശ്യപ്പെട്ടു

ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം വനിതാ വിഭാഗത്തിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ജർമ്മനി ഇന്ത്യയെ പരാജയപ്പെടുത്തി നാല് മുത്സ്രങ്ങളുടെ പരമ്പരയിൽ മൂന്ന് മത്സരങ്ങൾ ജയിച്ച ജർമ്മന്റിയാണ് വനിതാവിഭാഗത്തിൽ മുന്നിൽ നിൽക്കുന്നത്